പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇന്ന് കണ്ടെത്തി

വിദഗ്ധസംഘത്തിന്റെ പരിശോധന

കേന്ദ്രസഹമന്ത്രി വി

ആചരിക്കുന്നു

ദേശീയ ദുരന്തനിവാരണ സേനയും അഗ്നിശമനസേനയും ഷ്ട്രോലീസും നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്

അപകടത്തിൽ പരി ക്കേറ്റവരിൽ മൂന്ന് പേർ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എട്ടു പേർ ടാറ്റാ ജനറൽ ആശുപത്രിയിലും ചികിത്സയിലുണ്ട് വൈദ്യുതി മന്ത്രി എം

റവന്യുമന്ത്രി ഇ ചന്ദ്രശേഖരൻ അൽപ്പസമയത്തിനുള്ളിൽ പെട്ടിമുടിയിൽ എത്തും തിരച്ചിൽ ഊർജ്ജിതമായി തുടരുകയാണെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ എച്ച്

മൃതിച്ച്വരുടെ ആശ്രിതർക്ക് രണ്ടുലക്ഷം രൂപ വീതം പ്രധാനമന്ത്രിയുടെ ഭൂരന്ത പ്രതികരണ നിധിയിൽ നിന്നും നൽകും

കോട്ടയത്ത് മീനച്ചിലാറ്റിലെ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി അതിനിടെ കൊല്ലത്തുനിന്നും മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിനായി പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടു ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തുടരുന്നു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളംമലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസറഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്

സച്ഛ ഭാരത ദൌതൃത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം ശുചിത്വ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടം വൃക്തമാക്കുന്ന പ്രദർശനവും ഇവിടെ ഉണ്ടാകും മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായാണ് കേന്ദ്രം സ്ഥാപിക്കൂന്നുത്

ആഗസ്റ്റ് വിപ്ലവം എന്നും ഈ ദിവസം അറിയപ്പെടുന്നു

ജി

എ യും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും പ്രത്യേക അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി എം സുരേഷ് ബാബു

ഇതിനുള്ള നിർദ്ദേശം നല്കി കഴിഞ്ഞു വിമാനപകടത്തിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരാൾ കൂടി മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്

ശ്രീരാമകൃഷ്ണൻ മന്ത്രിമാരായ ഇ

ജയരാജൻ കെ

ശൈലജ രാമചന്ദ്രൻ കടന്നപ്പള്ളി എ

ശശീന്ദ്രൻ ടി

രാമകൃഷ്ണൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ തുടങ്ങിയവരും സംഘത്തിലുണ്ട്

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ടെലഫോണിൽ ബന്ധപ്പെട്ടാണ് രാഷ്ട്രപതി അനുശോചനം അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ ബന്ധപ്പെട്ട പ്രധാനമന്ത്രി കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു

പോസ്റ്റ്മോർട്ടത്തിന് തൊട്ടുമുമ്പ് നടത്തിയ സ്വാബ് ട്ടസ്റ്റിലാണ് മരിച്ചയാൾക്ക് കൊവിഡ് കണ്ടെത്തിയതെന്ന് മന്ത്രി ്ലൂക് ടി ജലീൽ പറഞ്ഞു സുധീർ വാര്യത്ത് എന്നയാൾക്കാണ് കൊവിഡ് കണ്ടെത്തിയിരിക്കുന്നത്

എല്ലാവരുടേയും പരിശോധനകൾ നടത്തും രക്ഷാദൌതൃത്തിൽ പങ്കെടുത്തവർ ഇന്ന് തന്നെ ആരോഗൃ വകുപ്പിനെ വിവരം അറിയിക്കേണ്ട താണെന്നും മന്ത്രി അറിയിച്ചു

ഇവരുടെ കുടുംബാംഗങ്ങളായ നാല് പേർ കോവിഡ് സ്ഥിരീകരിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയിലാണ്